ത കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന് ഇന്ന് തിരി തെളിയും

കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ധോത്രെ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ വെള്ളി മെഡലുകൾ പരിപാടിയിൽ സമ്മാനിക്കും

ശ്യാമപ്രസാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആന്റ് റിസർച്ചും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും രും കേരളത്തിന്റെ അതിർത്തി റോഡുകൾ അടച്ച കർണ്ണാടക നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നിയന്ത്രണം പാടില്ലെന്ന കേന്ദ്ര മാർഗ്ഗ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് കർണ്ണാടകയുടെ നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു

രുര പരമ്പരാഗത തെരുവു വിളക്കുകൾ പൂർണ്ണമായി എൽ ഇ ഡി യിലേക്ക് മാറ്റുന്ന നിലാവ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു സംസ്ഥാനതല ചടങ്ങ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരുവു വിളക്കുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതോടെ ഊർജ്ജ ഉപയോഗവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എ

മൊയ്തീൻ അധ്യക്ഷനായിരുന്നു മന്ത്രി എം

മണി മുഖ്യാതിഥിയായി പങ്കെടുത്തു

പത്മഭൂഷൺ ഡോക്ടർ കെ

നമ്പ്യാരുടെ വെങ്കല പ്രതിമ ചടങ്ങിൽ അനാച്ഛാദനം ചെയ്യും അദ്ദേഹത്തിന്റെ ശാസ്ത്ര വികസന ദർശനങ്ങളും കെൽട്രോണിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളും സയൻസ് ഗാലറിയും ഗവേഷണ പരീക്ഷണ ശാലകളും ഉൾപ്പെടുത്തി കെൽട്രോൺ സമുച്ചയത്തിൽ സ്മാരക മന്ദിരം പൂർത്തീകരിച്ചിട്ടുണ്ട്

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

രുഭ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കും രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഠിക്കാറാം മീണ വാക്സിൻ സ്വീകരിക്കും തുടർന്ന് ഓഫീസ് ജീവനക്കാർക്കും വാക്സിൻ നൽകും

സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തവരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് പുതിയ ജഡ്ജിമാരായി നിയമിച്ചത്

ബാബു മുരളി പുരുഷോത്തമൻ എ

സിയാബ് റഹ് മാൻ എന്നിവരാണ് പുതിയ ഹൈക്കോടതി ജഡ്ജിമാർ രുര പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും ഐശ്വര്യ കേരള യാത്ര ഞായറാഴ്ച പാറശ്ശാലയിൽ സമാപിച്ചിരുന്നു മാണി സി കാപ്പന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ യു ഡി എഫ് പ്രവേശം സമാപന സമ്മേളത്തിൽ പ്രഖ്യാപിച്ചേക്കും രുര ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്ര രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിലെത്തും ജില്ലാ സംസ്ഥാന നേതാക്കൾ യാത്രയെ സ്വീകരിക്കും വടകരയിലെയും കുറ്റ്യാടിയിലെയും പൊതുസമ്മേളനത്തിനു ശേഷം യാത്ര വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും

താമരശ്ശേരി അടിവാരത്ത് യാത്രയെ വരവേൽക്കും ബാലുശ്ശേരിയിൽ രാവിലെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് രുര എ വിജയരാഘവൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്ര പാലക്കാട് ജില്ലയിൽ ഇന്ന് പര്യടനം പൂർത്തിയാക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവസരവാദ നിലപാടാണ് പലയിടങ്ങളിലും എം എൽ എമാരെ ബി ജെ പിയിൽ എത്തിക്കുന്നതെന്ന് എ വിജയരാഘവൻ പട്ടാമ്പിയിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു രും സംസ്ഥാന വനിതാ കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസ് രജത ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും ഏതാനും പ്രസിദ്ധീകരണങ്ങളും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും

രുഭ ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ടീമിനങ്ങളിൽ മെഡൽ നേടിയവർക്ക് കായിക വകുപ്പിൽ തന്നെ ജോലി നൽകുമെന്ന് മന്ത്രി ഇ

ജയരാജൻ അറിയിച്ചു

നീലേശ്വരം ഇ എം എസ് സ്റ്റേഡിയം ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രുര ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി എ ടി കെ മോഹൻബഗാൻ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും രണ്ടുഗോൾ വീതം നേടി ഇന്നു വൈകിട്ട് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും രംഭ കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് ഇന്ന് നിർണായക പോരാട്ടം വൈകീട്ട് നാലിന് സുദേവ ഡൽഹി ടീമിനെയാണ് ഗോകുലം നേരിടുന്നത്

ഇന്ന് ജയിച്ചാൽ കിരീട പോരാട്ട ഗ്രൂപ്പിൽ ഗോകുലത്തിന് സ്ഥാനം ഉറപ്പിക്കാം

വൈകീട്ട് മന്ത്രി എ

ബാലൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

കപ്പലുകളുടെ സുഗമമായ പോക്കുവരവിനു വേണ്ടിയാണ് ഇവ സ്ഥാപിച്ചത്

ഐ എൻ ടി യു സിയുടെ ട്രാൻസ്പോർട്ട് ഡമോക്രാറ്റിക് ഫെഡറേഷനും ബി എം എസിന്റെ കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘുമാണ് പണിമുടക്ക് നടത്തുന്നത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ദീർഘദൂര സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട് രും തൃശൂർപൂരം സാമ്പിൾ വെടിക്കെട്ടും പൂരം എക്സ്ബിഷനും ഒഴിവാക്കി നടത്താൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ജില്ലാ കലക്ടറെ സമ്മതം അറിയിച്ചു കോവിഡ് നിയന്ത്രണങ്ങളോടെ തൃശൂർപൂരം സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ദേവസ്വം പ്രതിനിധികളുടെയും ആരോഗ്യ പൊലീസ് ഉദ്യോഗസ്ഥരുടെയും കലക്ട്രേറ്റിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ കഴിയുന്ന ചടങ്ങുകളുടെ പട്ടിക ദേവസ്വങ്ങൾ കലക്ടർക്ക് കൈമാറി പങ്കെടുപ്പിക്കാവുന്ന ആനകളുടെ എണ്ണം ഉൾപ്പെടെ തീരുമാനങ്ങൾ നാളെ എടുക്കും രംഭ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്തമാസം രണ്ടു കോടി തൊഴിലവസരങ്ങൾ കൂടി കേരളത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി എ

മൊയ്തീൻ അറിയിച്ചു കൊടുങ്ങല്ലൂർ മതിലകം പാപ്പിനിവട്ടം ജി എൽ പി സ്കൂളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഉണ്ണികൾക്ക് ഒരു ഊട്ടുപുര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രംഭ മത്സ്യത്തൊഴിലാളി പുനർഗേഹം പദ്ധതിയിൽ കോഴിക്കോട്ട് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മ തറക്കല്ലിട്ടു

രുര നഗരങ്ങളെയും കാർഷികവൽക്കരിക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റ് തെളിയിച്ചതായി മന്ത്രി വി

വിൽവട്ടം കൃഷിഭവനിലെ വിള ആരോഗ്യ പരിപാലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രുര ചരിത്ര മ്യൂസിയങ്ങൾ പുതുതലമുറയുടെ പാഠങ്ങളാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

രംഭ റെയിൽവെ ട്രാക്കിലെ വിള്ളൽ കൃത്യ സമയത്ത് അധികൃതരെ അറിയിച്ച് അപകടം ഒഴിവാക്കിയ പട്ടാമ്പി സ്വദേശി തെക്കുമ്മൽ കുഞ്ഞഹമ്മദിന് ദക്ഷിണ റെയിൽവെ പാലക്കാട് ഡിവിഷൻ സുരക്ഷാ പുരസ്കാരം സമ്മാനിച്ചു രുമ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും പട്ടിക ജാതി സംവരണ നിയമന അട്ടിമറിക്കെതിരെയും എറണാകുളം ജില്ലാ ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച പി എസ് സി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി രമേശ് കൊച്ചുമുറി ഉദ്ഘാടനം ചെയ്തു